ദിവസം മാത്രം പത്രിക സമർപ്പിക്കാൻ ഇനി അഞ്ച് ദിവസം അന്തിമ സ്ഥാനാർത്ഥി ചിത്രം ഇന്ന് വൈകിട്ടോടെ

ഇന്ന്പുറത്തിറങ്ങുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല്

പാർലമെൻറി ബോർഡ് അംഗീകാരം നൽകി പ്രഖ്യാപനം ഉടനെന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ

ഇത്തവണ തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കുകയെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ

സംസ്ഥാന വനിതാ കമ്മീഷന് ഇന്ന് രജത ജൂബിലി

നാമനിർദ്ദേശപത്രിക സമർപ്പിക്കാൻ ഇനി അഞ്ച് ദിവസം മാത്രം ശേഷിക്കേ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് ചിത്രം ഇന്ന് വൈകുന്നേരത്തോടെ വ്യക്തമാകും അവശേഷിക്കുന്ന നാല് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കൂടി സിപിഐ പ്രഖ്യാപിച്ചതോടെ എൽ

മണ്ഡലം കൺവെൻഷനുകളും പൊതുയോഗങ്ങളുമായി ആദ്യ ഘട്ട പ്രചരണം എൽഡിഎഫ് ഊർജ്ജിതമാക്കി

ചില മണ്ഡലങ്ങളിൽ പ്രപ്പിര്ണം തുടങ്ങാൻ ഇന്നലെ രാത്രി തന്നെ നിയുക്ത സ്മാനാർത്ഥികൾക്ക് നിർദ്ദേശം ലഭിച്ചിച്ചിട്ടുണ്ട്

ഡി

തർക്കം നിലനിൽക്കുന്നുവെന്ന് റിപ്പോർട്ടുള്ള മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ അന്തിമ തീരുമാനത്തിലെത്തിയെന്നാണ് റിപ്പോർട്ട് ഹൈക്കമാൻഡിന്റെ അംഗീകാരം ലഭിച്ചാലുടൻ കെപിസിസി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഡൽഹിയിൽ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും ഭാരതീയ രാഷ്ട്രീയ ജനതാദളിന് അനുവദിച്ചു മലമ്പുഴ സീറ്റ് കോൺഗ്രസിന് തിരിച്ചു നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്

ചില സീറ്റുകളിൽ ഒഴിച്ച് ബാക്കി സ്ഥാനാർത്ഥികളെ ഇന്ന് തന്നെ പ്രഖ്യാപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഹരിപ്പാട് മാധ്യമങ്ങളോട് പറഞ്ഞു

മുരളീധരൻ എം പിമാർക്ക് മത്സരിക്കുന്നതിന് സംസ്ഥാന നേതൃത്വം ഇളവ് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് കെ

നേമം നിയോജക മണ്ഡ്ലത്തിൽ വി ശിവൻ കുട്ടിയാണ് എൽ

ബിജെപി സ്ഥാനാർത്ഥിയെ ഉടൻ പ്രഖ്യാപിക്കും കഴിഞ്ഞ തവണ ബിജെപിയിലെ ഒ രാജഗോപാലാണ് ഇവിടെ ജയിച്ചത്

ഇന്നലെ വൈകിട്ട് ന്യൂഡൽഹിയിൽ ചേർന്ന ബിജെപി പാർലമെന്ററി ബോർഡ് യോഗം കേരളത്തിൽ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമരൂപം നൽകി

ഡി എ ഘടകകക്ഷിയായ ബിഡിജെഎസ് മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്നലെ പ്രസിദ്ധീകരിച്ചു

സുരേന്ദ്രൻ കോൺഗ്രസ് വിട്ട് നിരവധി നേതാക്കളും പ്രവർത്തകരും ബിജെപി യിലേക്ക് വരുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു കോൺഗ്രസ് നേതൃത്വത്തിന് ആത്മാർത്ഥത ഇല്ലെന്നും നേതാക്കൾ ബിജെപിയിലേക്ക് എത്തുന്നത് പുതു്മൂയുള്ള കാര്യമല്ലെന്നും അദ്ദേഹം മഞ്ചേശ്വരത്ത് പറഞ്ഞു

ഒ ഇൻട്രോ ഹരിതചട്ടം കർശനമായി പ്രി്ലീച്ചായിരിക്കും ഇത്തവണ തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കുക്കയെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ ആകാശവാണിയോട് പറഞ്ഞു സമ്മതിദായകരും രാഷ്ട്രീയ കക്ഷികളും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു